പ്രവർത്തിക്കാൻ അനുമതിയെന്നു കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ

വിതരണത്തിനു തുടക്കമായി

ബ്ളാസ്റ്റേഴ്സും ഇന്നിറങ്ങും

ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷൻ ദൌത്യം ഭാരതം നടത്തുകയാണെന്നും ഏറ്റവും തീവ്രഗതിയിൽ രാജ്യത്തെ പൌരന്മാർക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ടിരിക്കുക യാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊറോണ പ്രതിസന്ധി ഘട്ടത്തിൽ ഭാരതത്തിന് ലോകത്തെ സേവിക്കാനാവുന്നത് ഔഷധങ്ങളുടെ കാരൃത്തിലും വാക്സിന്റെ കാര്യത്തിലും ഇന്ത്യ സൂക്ഷ്മവും സ്വയം പര്യാപ്തവുമായതു കൊണ്ടാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നമുക്ക് സ്വാതന്ത്യം നേടിതന്ന മഹാനായകന്മാരുമായി ബന്ധപ്പെട്ട പ്രാദേശിക സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല സമയമാണിതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അമൃത് വോയ്സ് രാജ്യത്തിന്റെ ഓരോ കോ്ണിലും രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറ്റായി വീരനായകർ ഉടലെടുത്തിരുന്നതായും അതുകൊണ്ടു തന്നെ ര്അവരുടെ സമരങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട ഓർമ്മകളെയും സംരക്ഷിക്കുക എന്നത് വളരെ മഹത്വപൂർണമായ കാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇതിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എഴുത്തുകാർക്ക് സ്വാതന്ത്ര്യസമര പോരാളികളെക്കുറിച്ച് എഴുതുന്നതിന് പ്രോത്സാഹനം ലഭിക്കും എല്ലാ യുവാക്കളും ഈ തുടക്കത്തിന്റെ ഭാഗമാകണമെന്നും തങ്ങളുടെ സാഹിത്യപരമായ കഴിവ് പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാഭ്യാസമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു

പക്ഷാഘാതം ബ്ലിധിച്ച് നടക്കാൻ സാധിക്കാത്ത ഇദ്ദേഹം വർഷങ്ങളായി പ്രൂ തോണിയിൽ വേമ്പനാട്ടുകായലിൽ പോകുകയും കായലിൽ ് എറിഞ്ഞിരിക്കുന്ന ക്ലാസ്റ്റിക് കുപ്പികൾ പുറത്തെടുത്തുകൊണ്ട് വ്യരുകയും ചെയ്യുന്നു

നാല് ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ ഇക്കുറി സഭ പരിഗണിക്കുമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചു

പ്രവേശനം ഓൺലൈൻ ടിക്കറ്റുകളിലൂടെ ഉറപ്പാക്കാൻ തിയേറ്റർ ഉടമകൾ മുൻകൈ എടുക്കണമെന്നും ശ്രീ

സിനിമാ പ്രദർശനങ്ങൾക്കിടയിൽ ശുചീകരണ പ്രക്രിയയ്ക്ക് കൃത്യമായ ഇടവേള നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു

രാഷ്ട്രപതിട്ട്ടപ്നിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ദ്ദേശീയപോളിയോ പ്രതിരോധ യജ്ഞത്തിന് രാഷ്ട്രപതി ഇന്നലെ തുടക്കം കുറിച്ചു

എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

കേരള ബ്ലാസ്റ്റേഴ്സ് എ

നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്

കോവിഡ് പ്രതിസന്ധിയ്ക്കിടയിലും വിദ്യാർത്ഥികൾക്ക് പഠനമൊരുക്കാൻ അദ്ധാനിച്ച അധ്യാപകരേയും രക്ഷിതാക്കളേയും മുഖ്യമന്ത്രി ഫെയ്സ്ബുക് കുറിപ്പിൽ അഭിനന്ദിച്ചു

ഇന്ത്യയുടെ തീരദേശ മേഖല സംരക്ഷിക്കുന്നതിൽ സേന വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് ഡയറക്ടർ ജനറൽ കെ